നെഹ്റും മെമ്മോറിയൽ മ്യൂസിയത്തിന്റെ ട്ട് ഡൽഹിയിലെ എക്സിക്യൂട്ടീവ് കൌൺസിൽ അധ്യക്ഷനായി പ്രധാനമന്ത്രി യുടെ മുൻ പ്രിൻസിപ്പൽ സെക്രിട്ടറി നൃപേന്ദ്ര മിശ്രയെ നിയമിച്ചു

ഇന്തൃ ഓസ്ട്രേലിയ മൂന്നാം ഏകദിനം ഇന്ന് ബംഗളൂരുവിൽ

കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരിലെത്തിക്കുന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കശ്മീരിലെത്തിയതായിരുന്നു അദ്ദേഹം വിവിധ വികസന പദ്ധതികൾ ജമ്മുകശ്മീരിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു കശ്മീരിൽ പുതുതായി നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന് അദ്ദേഹം തറക്കില്ലിട്ടു ന്യൂഡൽഹിയിലെ ദേശീയ മാധ്യമ കേന്ദ്രത്തിന്റെ മാതൃകയിൽ ജമ്മുകശ്മീരിലും ലഡാക്കിലും മാധ്യമകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സാംബ ജില്ലയിലെത്തിയ ക്യേന്ദ്രസഹമന്ത്രി അർജുൻറാം മേവാളിൽ മുടങ്ങികിടന്ന ജലവിതരണ്പ്പിദ്ധതി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രസഹമന്ത്രി അശ്വനികുമാർ ചൌഉബ്യും ജനങ്ങളുമായി ആശയവിനിമയം നടത്തി

പ്രീപെയ്ഡ് കണക്ഷൻ വഴി ശബ്ദസന്ദേശവും എസ്

ജയശങ്കർ ലോക്സഭാംഗങ്ങൾക്ക് ഉറപ്പ് നൽകി ഇന്നലെ വിദേശകാര്യ വിഷയങ്ങളിൽ ഉപദേശം നൽകുന്ന കമ്മറ്റി അംഗങ്ങളെ മന്ത്രി അറിയിച്ചതാണ് ഇക്കാര്യം മന്ത്രിയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും അർത്ഥവത്തും ഉൾക്കാഴ്ചയുള്ളതുമായിരുന്നുവെന്ന് സമിതി അംഗവും ബിജു ജനതാദളിന്റെ പാർലമെന്റംഗവുമായ സ്ഥസ്മിത് പത്ര പറഞ്ഞു

പ്രസാർ ഭാരതി ബോർഡ് അധ്യക്ഷൻ ഡോ

എട്ടംഗ സമിതിയിൽ സാംസ്കാരിക മന്ത്രാലയത്തിൽ നിന്നുള്ള രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായും നിയമിച്ചിട്ടുണ്ട്

വോയ്സ് പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് സംവാദ പരിപാടി നടപ്പിലാക്കുന്നത്

പരീക്ഷയുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ എങ്ങനെ മറികടക്കാമെന്നത് സംബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്പോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകും കഴിഞ്ഞ വർഷം ജന്നുപ്പിരിയിൽ നടന്ന പരീക്ഷാ പേ ചർച്ചയിൽ കുട്ടികളിൽ സമ്മർദ്ദം സൃഷ്ടിക്കരുതെന്ന് പ്രധാനമന്ത്രി രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു എല്ലാ കുട്ടികൾക്കും അവരുടേതായ ഒരു കഴിവുണ്ട്

ഐസ്വാളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ലാ്ൻ റംറുതി സെയ്ലോ കഴിഞ്ഞ വർഷം അധ്യാപകരോടൊപ്പം സ്കൂളിലിരുന്ന് ഈ ചർച്ച കണ്ടതാണ്

ജെ

നിരവധി മന്ത്രിമാരും പ്രമുഖ നേതാക്കളും വീടുതോറും കയറിയിറങ്ങി പ്രചാരണം നടത്തും മറ്റന്നാൾ ലക്നൌവിൽ പൊതുയോഗത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പങ്കെടുക്കും ജൻ ജാഗരൻ അഭിയാന്റെ ഭാഗമായി ഗൊരക്പൂരിൽ ഇന്ന് റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്

കോഴിക്കോട്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇതിനെതിരെയുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാം നിയമസഭയിൽ പ്രമേയം പാസാക്കാനും നിയമം പിൻവലിക്കാൻ കേന്ദ്രഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്യാം എന്നാൽ നിയമം നടപ്പാക്കാൻ സൌദ്ധിക്കില്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുകൾക്കിടയാക്കുമെന്നും അദ്ദേഹ്ം പറഞ്ഞു

ജെ പി യെ ബാധിച്ചിട്ടില്ലെന്ന് അസമിലെ നഗരവികസന മന്ത്രി പിജൂഷ് ഹസാരിക പറഞ്ഞു പാർട്ടിയുടെ നയങ്ങളോടുള്ള ജനപിന്തുണ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വ്യക്തമായതാണെന്ന് അദ്ദേഹം പറഞ്ഞു

സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വിളപ്പിൽ സാമൂഹൃ ആരോഗൃ കേന്ദ്രത്തിൽ മന്ത്രി കെ

ഒരു റിപ്പോർട്ട് രോഗപ്രതിരോധ ചികിത്സാപട്ടികപ്രകാരം പോളിയോ വാക്സിൻ നൽകിയിട്ടുളള കൂട്ടികൾക്കും പൾസ് പോളിയോ ദിനങ്ങളിൽ പോളിയോ തുളളി മരുന്ന് നൽകണം നവജാത ശിശുക്കൾ ഉൾപ്പെടെയുളള എല്ലാ കുട്ടികൾക്കും ഈ ദിവസം പോളിയോ വാക്സിൻ നൽകണം സംസ്ഥാനത്തെമ്പാടും സ്ഥാപിച്ചിട്ടുള്ള ബൂത്തുകൾ വഴിയാണ് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് തുള്ളിമരുന്ന് നൽകുന്നത് പോളിയോ തുള്ളി മരുന്ന് എടുക്കാൻ വിട്ടുപോയ കുട്ടികൾക്ക് നാളെയും മറ്റന്നാളുമായിം വീട് വീടാന്തരം കയറി തുള്ളിമരുന്ന് നൽകും പരിശീലനം ലഭിച്ച ആരോഗ്യ സന്നദ്ധപ്രവർത്തകർ രാവിലെ എട്ടുമണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ബൂത്തുകളിലൂടെ പ്പോളീയോ വാക്സിൻ വിതരണം ചെയ്യും

കേന്ദ്രങ്ങളിലും ബസ് സ്റ്റാന്റുകൾ റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വന്നു പോകാനിട്ടയുളള എല്ലാ സ്ഥലങ്ങളിലും ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലെ അഞ്ച് വയസിന് താഴെയുളള കുഞ്ഞുങ്ങൾക്കും പോളിയോ വാക്സിൻ നൽകും

മകരവിളക്ക് കാലത്തെ തീർത്ഥാടനത്തിനു സമാപനം കുറിച്ച് നാളെ മാളികപ്പുറത്ത് ഗുരുതി നടക്കും

പുതിയ സാങ്കേതിക വിദ്യയുടെ സ്ഫായത്തോടെ കുറഞ്ഞ ചെലവിൽ ബോംബ് നിർമ്മിയ്ക്കാൻ താൻ പദ്ധ്തിയിട്ടിരുന്നതായി അൻസാരി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു

മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമും ഓരോ കളി വീതം ജയിച്ച് സമനിലയിലാണ് ഇന്ന് ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം

എം റെയിൻബോ ശൃംഖലകളിലും കളിയുടെ തത്സമയ ദൃക്സാക്ഷി വിവരണം ഇംഗ്ലീഷിലും ഹിന്ദിയിലും കേൾക്കാം

ആദ്യ മുത്സരത്തിൽ ശ്രീലങ്കയാണ് എതിരാളി

തിരുവനന്തപുരം സെന്റ് സേവ്യേഴ്സ് കോളേജ് ഗ്രൌണ്ടിലാണ് മത്സരം